എം ബാർകോഴ കേസിൽ മുൻമന്ത്രി കെ എം മാണിയെ കുറ്റവിമു ക്തനാക്കണമെന്ന വിജിലൻസ് റിപ്പോർട്ട് കോടതി തള്ളി അന്വേഷണത്തിൽ ആശങ്കയില്ലെന്ന് കെ എം മാണി കന്യാസ്ത്രീയുടെ പീഡനപരാതിയിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാ പേക്ഷ നൽകി ബിഷപ്പിനെ നാളെ ചോദ്യം ചെയ്യും സംസ്ഥാനത്ത് ഭരണ സ്തംഭനമാണെന്ന് ബി

എസ് ശ്രീധരൻപിള്ള

എസ് ടി യിൽ ഉൾപ്പെടുത്തി പെട്രോളിയം ഉല്പന്നങ്ങളുടെ വിലവർധന പിടിച്ചുനിർത്താൻ കേന്ദ്രഗവൺമെന്റ് തയ്യാറക ണമെന്ന് കെ

എം ഹസ്സൻ

ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും ബാർകോഴക്കേസിൽ മുൻമന്ത്രി കെ എം മാണിയെ കുറ്റവിമു ക്തനാക്കണമെന്ന വിജിലൻസ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജി ലൻസ് കോടതി തള്ളി കേസന്വേഷണം പൂർണ മല്ലെന്നും അതിനാൽ റിപ്പോർട്ട് തള്ളുന്നതായും കോടതി പറഞ്ഞു അഴിമതി നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി പരിഗണി ച്ചാവും കേസിൽ തുടരമ്പേഷണ സാധ്യത പരിശോധിക്കുകയെന്ന് കോടതി വ്യക്തമാക്കി ഇതനുസരിച്ച് അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി വാങ്ങണം

വിജി ലൻസിന്റെ തുടരന്വേഷണ റിപ്പോർട്ടാണ് കോടതി തള്ളിയത്

എഫ് അന്വേഷണത്തിലും മാണിയെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ടാണ് വിജിലൻസ് സംഘം കോടതിയിൽ നൽകിയത് പൂട്ടിയ ബാറുകൾ തുറക്കാൻ മാണി ഒരു കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു കേസ് എന്നാൽ വിജിലൻസ് റിപ്പോർട്ട് തളളണമെന്നും മാണിക്കെതിരെ തുടരമ്പേഷണം വേണ മെന്നും ആവശ്യപ്പെട്ട് വി മുരളീധരൻ എം പി എൽ

എഫ് കൺവീനർ എ വിജയരാഘവൻ വി എസ് അച്യുതാനന്ദൻ തുട ങ്ങിയവർ ഹർജിയുമായി രംഗത്ത് വരികയായിരുന്നു പുനരന്വേ ഷണം ആവശ്യമില്ലെന്നായിരുന്നു വിജിലൻസ് നിലപാട് അന്വേഷണത്തിൽ ആശങ്കയില്ലെന്ന് കെ

എത്രവേണമെങ്കിലും അന്വേഷിക്കട്ടെയെന്നും നീതിക്കുവേണ്ടി പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റുകൾ മൂന്നു തവണ അന്വേഷിച്ചിട്ടും തന്നെ കുറ്റക്കാര നാക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും മാണി പറഞ്ഞു ബാർകോഴക്കേസിൽ വിജിലൻസ് കോടതി വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു

ഡി എഫ് ഗവൺമെന്റെിന്റെ കാലത്ത് രണ്ട്തവണയും എൽ

എഫിന്റ കാലത്ത് ഒരു തവണയും വിജി ലൻസ് നടത്തിയ അന്വേഷണങ്ങളിൽ മാണി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു കന്യാസ്ത്രീയുടെ പീഡനപരാതിയിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു ജാമ്യാപേക്ഷയിൽ തീർപ്പാകുന്നതുവരെ അറസ്റ്റ് തട യണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ഉച്ചകഴിഞ്ഞ് മുൻകൂർ ജാമ്യാ പേക്ഷ കോടതി പരിഗണിച്ചേക്കും

പി ഓഫീസിൽ ഡി

പി കെ സുഭാഷിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘമായിരിക്കും ചോദ്യം ചെയ്യുക ഇതിനായി ചോദ്യങ്ങളും ഉപചോദ്യങ്ങളുമടങ്ങിയ ചോദ്യാവലി അനേഷണ സംഘം തയ്യാ റാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്

കുറുവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ രണ്ടാം തവണയാണ് പൊലീസ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്

ഇന്ന് സംസ്ഥാന വ്യാപകമായി പന്തംകൊളുത്തി പ്രകടനം നടത്തുമെന്ന് സമരനേതാക്കൾ അറിയിച്ചു സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ സഹോദരി ഇന്നലെ അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിച്ചിരുന്നു

എൽ ശർമ്മ ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് മാറ്റാൻ കോട തിയോട് ആവശ്യപ്പെടുകയായിരുന്നു സംസ്ഥാനത്ത് ഭരണസ്തംഭനമാണ് നിലനിൽക്കുന്നതെന്നും ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും ബി

പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള ആരോപിച്ചു പ്രള യക്കെടുതിയുടെ പേരിൽ ഗവൺമെന്റ് ജനങ്ങളെ കൊള്ളയടിക്കു കയാണെന്ന് അദ്ദേഹം പറഞ്ഞു ശബരിമല തീർത്ഥാടകർക്ക് പ്രാഥ മിക സൌകര്യം പോലും തീർക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞി ല്ലെന്നും ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി കണ്ണൂർ പ്രസ് ക്ലബ്ബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെട്രോളിയം ഉല്പന്നങ്ങൾ ജി

ടി യിൽ ഉൾപ്പെടുത്തി വിലവർധന പിടിച്ചുനിർത്താൻ കേന്ദ്രഗവൺമെന്റ് തയ്യാറാകണ മെന്ന് കെ

സി പ്രസിഡണ്ട് എം

തുടർച്ചയായി എക്സൈസ് നികുതി കൂട്ടുന്ന നിലപാടിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

എ യുടെ കാലത്ത് പെട്രോൾ വിലക്കയറ്റത്തിനെതിരെ രൂക്ഷ മായി പ്രതികരിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്ത ബി ജെ പി ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു

അതിനിടെ അന്താരാഷ്ട്ര വിപ ണിയിൽ എണ്ണവില വീണ്ടും വർധിച്ചു ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മറ്റി അധ്യക്ഷ സ്ഥാനം അജയ് മാക്കൻ രാജിവെച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിത മാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി ആരോഗ്യപ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം താൽക്കാലികമായി അധ്യക്ഷസ്ഥാനത്തുനിന്ന് മാറിനിൽക്കുന്നതാണെന്ന് കോൺഗ്രസ് നേതാവ് പി

ചാക്കോ അറിയിച്ചു ഹാരിസൺ ഭൂമി തിരിച്ചുപിടിക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ ആലോചിക്കുമെന്ന് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തു നിന്ന് സുശീല ആർ ഭട്ടിനെ മാറ്റിയത് തിരിച്ചടിക്ക് കാരണമായി ല്ലെന്നും എല്ലാകാലത്തും ഒരാൾ തന്നെ വാദിക്കണമെന്ന് പറയു ന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു ദേശീയ ജാഥകളുടെ തയ്യാറെടുപ്പ് യോഗം ചർച്ചചെയ്തേക്കും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലൈസൻസ് ലഭി ക്കുന്നതിന് മുന്നോടിയായി അവസാനവട്ട പരിശോധന ആരംഭി ച്ചു സിവിൽ ഏവിയേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തു ന്നത് വിമാനത്താവളത്തിന്റെ രേഖകളും റൺവെ എയർകൺട്രോൾ ടവർ ഉൾപ്പെടെ സംവിധാനങ്ങളുമാണ് പരിശോ ധിക്കുന്നത് പരിശോധനകൾക്കുശേഷം വ്യോമയാന മന്ത്രാലയ ത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും ഒക്ടോബർ അവസാനത്തോടെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ നവംബർ ആദ്യം സർവീസുകൾ ആരംഭിച്ചേക്കും ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ യിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും

ആദ്യ മത്സ ര ത്തിൽ പാക്കി സ്ഥാ നോട് പരാ ജ യ പ്പെട്ട ഹോങ്കോങ് വലിയ വെല്ലുവിളി ഉയർത്തില്ലെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ

ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന ഇന്ത്യ പാക്കിസ്ഥാൻ മത്സരം നാളെയാണ് ഇന്നലെ ഗ്രൂപ്പ് ബി യിൽ അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ട് മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്ക ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരു ന്നു ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ചൈനയിലെ ചാങ്ജോയിൽ ഇന്ന് തുടക്കമാകും സിംഗിൾസ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും സൈന നേഹ്വാളും ഇന്ന് മത്സരി ക്കും സ്കൂൾ കലോത്സവത്തിൽ സബ്ജില്ലാതല മത്സരങ്ങൾ ഒഴി വാക്കണമെന്നതടക്കം നിർദേശങ്ങളിൽ തീരുമാനമെടുക്കാൻ ഗുണ നിലവാര പരിശോധന മേൽനോട്ട സമിതി യോഗം ഇന്ന് തിരുവ നന്തപുരത്ത് ചേരും ആലപ്പുഴയിൽ ഡിസംബറിൽ നടക്കുന്ന സംസ്ഥാന കലോ ത്സവത്തിന്റെ തിയ്യതി സംബന്ധിച്ച അന്തിമ തീരുമാനവും യോഗ ത്തിലുണ്ടാകും

അർധവാർഷിക പരീക്ഷയുടെ അവ ധിദിനങ്ങൾ സംസ്ഥാന കലോത്സവത്തിനായി മാറ്റിവെക്കണമെന്ന നിർദേശവും ഇന്നലെ വിദ്യാഭ്യാസമന്ത്രിയുടെ ചേംബറിൽ ചേർന്ന മാന്വൽ കമ്മറ്റി യോഗത്തിൽ ഉയർന്നിരുന്നു പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ചെലവ് ചുരുക്കാൻ വേണ്ടിയാണ് മത്സരങ്ങളിൽ ക്രമീകരണം ആലോചിക്കുന്നത്

സബ്ജില്ലാതലമത്സരം ഇല്ലാതെ ജില്ലാകലോത്സവത്തിലേക്ക് മത്സരാർത്ഥികളെ കണ്ടെ ത്തുന്ന കാര്യത്തിലും തീരുമാനമാകേണ്ടതുണ്ട് സംസ്ഥാനത്തെ പ്രധാന വിനോദ സഞ്ചാരകേന്ദ്രങ്ങൾ സഞ്ചാ രികളെ വരവേൽക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞതായി മന്ത്രി കട കംപള്ളി സുരേന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു

പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുട്ടനാട്ടിലെ സഹോദര ങ്ങൾക്കായി കോഴിക്കോട്ടെ വിദ്യാർത്ഥി കൂട്ടായ്മ തയ്യാറാക്കിയ നോട്ടുപുസ്തകങ്ങളുമായി വാഹനം വൈകിട്ട് പുറപ്പെടും ദേവ ഗിരി സേവിയോ ഹൈസ്കൂളിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്യും

കുട്ടനാട്ടിലെ കുട്ടികൾക്കൊരു കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തനം കോഴിക്കോട് ജില്ലയിലെ പ്രളയബാധിത വില്ലേജുകളിൽ കർഷ കർക്കുള്ള വായ്പാതിരിച്ചടവ് കാലാവധി മൂന്നുമുതൽ അഞ്ചു വർഷം വരെ നീട്ടിനൽകാൻ തീരുമാനമായി

നഷ്ടം സംഭവിച്ച കർഷ കർക്ക് പുതിയ വായ്പ ലഭ്യമാക്കാനും കലക്ടർ യു വി ജോസിന്റെ അധ്യക്ഷതയിൽ ചേർ ന്ന ജില്ലാതല ബാങ്കിങ് അവലോകന യോഗ ത്തിൽ തീരുമാനിച്ചു പേരാമ്പ്ര സി

ജി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിനെ ഉന്നതവിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തു ന്നതിന് ഗവൺമെന്റ് തുടക്കമിട്ടതായി മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കോളേജിൽ ഈ വർഷം ആരംഭിച്ച പുതിയ കോഴ്സു കളുടെയും കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനവും ലേഡീസ് ഹോസ്റ്റലിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം

വയനാട് വെള്ളമുണ്ടയിലെ ഇരട്ടക്കൊലപാത കക്കേസിൽ ഒരാൾ പിടിയിലായി കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയാണ് പിടിയിലായത് വെള്ളമുണ്ട മക്കിയാട് പന്ത്രണ്ടാം മൈലിലെ വീട്ടിൽ കഴിഞ്ഞ ജൂലായിലാണ് ഉമ്മർ ഫാത്തിമ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജമ്മുകശ്മീരിലെ പുൽവാമ ജില്ലയിൽ പാരാമിലിട്ടറി സേന യുടെ ക്യാമ്പിനുനേരെ ഭീകരരുടെ ആക്രമണം ഒരു സി

എഫ് ജവാന് പരിക്കേറ്റു നേവ ഗ്രാമത്തിലെ സി

എഫ് എസ്

ജി ക്യാമ്പുകൾക്കുനേരെയാണ് ആക്രമണമുണ്ടായത്